കൂടുതൽവിവരങ്ങളുമായിിസുനീഷ്

ടിയിൽ ഇന്ത്യ സിംഗപ്പൂർ ഹാക്കത്തണിന്റെ രണ്ടാം പതിപ്പിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷംസിംഗപ്പൂരിൽസംഘടിപ്പിച്ച ഹാക്കത്തണിൽ മത്സരത്തിനായിരുന്നു ഊന്നൽ എങ്കിൽ ഇത്തവണ ഇരുരാജൃങ്ങളിലേയും വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോജിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ശ്രീ

നല്ല ആരോഗ്യം മികച്ച ജീവിത നിലവാരം ഗുണമേന്മയുള്ളവിദ്യാഭ്യാസം സംശുദ്ധ ഊർജ്ജം തുടങ്ങിയവയാണ് ഹാക്കത്തണിന്റെ പ്രമേയം ന്യൂസ്ഡെസ്ക്ആകാശവാണി

ദ്രുതകർമ്മസേനയുടെ സ്ഥാപകദിന ആഘോഷങ്ങൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജമ്മുവും കാശ്മീരും സമാധാനത്തിന്റെയും അദ്ദേഹം അഭിവൃദ്ധിയുടെയും പുതിയ പാതയിലാണെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു സി ആർ പി എഫ് ജവാൻമാരുടെ ജീവത്യാഗം അനുസ്മരിച്ച അദ്ദേഹം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത നാഷണൽ പോലീസ് മെമ്മോറിയൽ വീരമൃത്യു വരിച്ച ജവാൻമാരെ ആദരിക്കുന്നതിനാണെന്ന് പറഞ്ഞു

വീരമൃത്യു വരിച്ച ജവാൻമാർക്കുള്ള ധീരതാ പുരസ്കാരങ്ങൾ അവരുടെ വിധവകൾക്ക് ചടങ്ങിൽ സമ്മാനിച്ചു

ഗാസിയാബാദ് മുതൽ ഹാപുർ വരെയുള്ള പാതയുടെ ഉദ്ഘാട്ടന്മാണ് ഇന്ന് നടക്കുന്നത്

ഡൽഹി മീററ്റ് പാത നാല് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുന്നത്

അഹമ്മദാബാദിലെ ജി എം ഡി സി മൈതാനിയിൽ നവരാത്രിയോടനുബന്ധിച്ചുള്ള പരിപാടി ഇന്നലെ വൈകിട്ടോടെയാണ് ആരംഭിച്ചത് ആദി ശക്തിയുടെ ആരാധനയ്ക്കായി നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ നൃത്ത ഉത്സവം കൂടിയാണ് നവരാത്രിയെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റുപാനി പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി വിനോദസഞ്ചാരികളെയാണ് ഉത്സവം ആകർഷിക്കുന്നത് ഭക്ഷ്യമേള കരകൌശല മേള കൂട്ടികൾക്കുള്ള വിനോദങ്ങൾ തുടങ്ങിയവ ഈ പരിപാടിയിലൂടെ വൃത്യസ്ത അനുഭവമാണ് സമ്മാനിക്കുന്നതെന്ന് ശ്രീ റുപാനി പറഞ്ഞു രണ്ട് വർഷത്തിൽ ഒരിക്കൽ നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ഗുജറാത്തിന്റെ തനതായ സുപ്രധാന പരിപാടിയാണ് വൈബ്രന്റ് ഗുജറാത്ത് സമ്മേളനം ജനുവരിയിലെ മകരസംക്രാന്തി ദിനത്തിലാണ് അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവം നടക്കുന്നത്

കാലാവസ്ഥാവൃതിയാനം സംബന്ധിച്ച അന്തർ മന്ത്രാലയ സമിതിയുടെ യോഗത്തിന് മൂന്നോടിയായി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്താസ്റ്റിക്കിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ വ്യവസായികൾ എന്നിവരുമായി ചർച്ച ആവശ്യമാണെന്ന് ശ്രീ മിശ്ര പറഞ്ഞു

തെരഞ്ഞെടുപ്പ്വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങുമെന്നുംഅടുത്ത മാസം ഒമ്പതിന് ആണ് പത്രികസമർപ്പിക്കനുള്ളഅവസാന തീയതിയെന്നുംസംസ്ഥാന മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ശൈലേന്ദ്രകുമാർ ശ്രീനഗറിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

അന്നുതന്നെ ഉച്ചതിരിഞ്ഞ് മൂന്ന്ക് മണിക്കാണ് വോട്ടെണ്ണൽ

നാളെയാണ് സൂക്ഷ്മ പരിശോധന

വൈകുന്നേരം മൂന്ന് മണി വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം

എഫ് സ്ഥാനാർത്ഥി മനു സി പുളിക്കൻ കഴിഞ്ഞദിവസം പത്രിക സമർപ്പിച്ചു

ശനിയും ഞായറും അവധിയായതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല വട്ടിയൂർക്കാവിലെ എൽ

എഫ് സ്ഥാനാർത്ഥി വി കെ പ്രശാന്തും യു

വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകളും വെള്ളം നീക്കം ചെയ്യുന്നതിനുള്ള യന്ത്രവും ആവശ്യപ്പെട്ടിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ രണ്ടാം നില വരെവെള്ളം കയറിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി എങ്കിലും രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്

വീടുകൾ വാണിജ്യസ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

പ്ലാസ്റ്റിക് സാമഗ്രികൾ എത്തിക്കുന്നവർക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകും

ഷോലെയിൽ കാലിയ എന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രം ഏറെ ശ്രീക്കപ്പെട്ടു

ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചതാണ് ഈ വിവരം

ഒരുറിപ്പോർട്ട്

വനികളുടെ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ സിക്കിറെഡ്നി സഖ്യം ജാപ്പനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു

ഡോളറിന്റെ സമ്മാനതുകയാണ സ്വന്തമാക്കിയത്